മുതൽ സുപ്രീംകോടതി തുടർച്ചയായ വാദം കേൾക്കും മധ്യസ്ഥ ചർച്ചകൾ പരാജയം

ഗുനിയയുടെ പരമോന്നത പുരസ്കാരമായ നാഷണൽ ഓർഡർ ഓഫ് മെരിറ്റ് സമ്മാനിച്ചു

റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തിയിൽ കേരള തമിഴ്നാട് പോലീസ് സംയുക്ത പരിശോധന നടത്തുന്നു

മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ ശ്രമം പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണിത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് തീരുമാനം റിട്ടയേർഡ് ജസ്റ്റിസ് എഫ്

ഇബ്രാഹിം ഖലീഫുള്ള അധ്യക്ഷനായ മധ്യസ്ഥ സമിതിക്ക് വിഷയത്തിൽ അന്തിമമായ തീരുമാനം എടുക്കാനായില്ലെന്ന് ബെഞ്ച് വിലയിരുത്തി മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹാരം കാണാൻ കഴിഞ്ഞ മാർച്ച് എട്ടിനാണ് സമിതിയെ നിയോഗിച്ചത് ജസ്റ്റിസുമാരായ എസ്

ചന്ദ്രചൂഢ് അശോക് ഭൂഷൺ എസ്

അഭിഭാഷകനായ ഗൌരവ് കുമാർ ബൻസാൽ നൽകിയ പൊതുതാല്പര്യ ഹർജി പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസുമാരായ അരുൺ മിശ്രയും എം

ഷായുമാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത്

നേരത്തെ ലോക്സഭ പാസ്സാക്കിയ ബിൽ ഇന്നലെ രാജ്യസഭയും അംഗീകരിക്കുകയായിരുന്നു ഭീകരവാദത്തിനെതിരെ ഒരേ സ്വരത്തിൽ പോരാടേണ്ടതുണ്ടെന്നും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എൻ ഡി

ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ബിൽ ചർച്ചയിൽ മറുപടി പറയവേ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി

ജാലിയൻവാലാബാഗ് ദേശീയ സ്മാരക ട്രസ്റ്റിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിക്കാനാണ് ബിൽ കൊണ്ടുവന്നതെന്നും സ്മാരകത്തെ ദേശീയ സ്മാരകമാക്കാനുള്ള ശ്രമമാണിതെന്നും സാംസ്കാരിക മന്ത്രി പ്രഹ്താദ് സിംഗ് പട്ടേൽ പറഞ്ഞു കാലഹരണപ്പെട്ട നിയമങ്ങളെ അസാധുവാക്കലും ഭേദഗതി വരുത്തലും ഉദ്ദേശിച്ചുള്ള റിപ്പീലിംഗ് ആന്റ് അമെന്റിംഗ് ബിൽപാർലമെന്റ് പാസ്സാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് കന്ദ്ര വ്യോമയാന മന്ത്രി ഹർദ്ദീപ്സിംഗ് പുരി പറഞ്ഞു

ഇന്ത്യയും ഗുനിയയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും ഇരുരാജൃങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സൌഹൃദവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിച്ചതിന്റെയും അടിസ്ഥാന ത്തിലാണ് അംഗീകാരം ഇന്ത്യയിലെയും ഗുനിയയിലെയും ജനങ്ങൾ ക്കായി പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു നേരത്തെ ഗുനിയൻ പ്രസിഡന്റുമായി രാഷ്ട്രപതി പ്രതിനിധി തല ചർച്ച നടത്തി പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശികവും ബഹുമുഖവുമായ വിവിധ വിഷയങ്ങൾ ഇരുനേതാക്ക ളും ചർച്ച ചെയ്തു ഇരുരാജ്യങ്ങളും തമ്മിൽ മൂന്ന് കരാറുകളിൽ ഒപ്പുവച്ചു

പത്താൻകോട്ട് ജില്ലാഭരണകൂടത്തിനോടാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഛണ്ഡിഗഢിൽ മുഖ്യമന്ത്രി സംസ്ഥാന പൊലീസ് മേധാവിയോട് അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി ഛണ്ഡീഗർ ഡിജിപി ജമ്മുകശ്മീർ സംസ്ഥാന പൊലീസ് മേധാവിയോടും കാര്യങ്ങൾ ഗൌരവമായി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അപ്പപ്പോൾ വിലയിരുത്തുന്നുണ്ട്

ഇ സിഗരറ്റുകൾ ലഹരി വസ്തുവാണോയെന്ന് വൃക്തമായി മനസ്സിലാക്കിയ ശേഷം നടപടികൾ മതി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇടപെടൽ ഇ സിഗരറ്റ് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് നടപടി

അതേസമയം താനല്ല സുഹൃത്താണ് വാഹനമോടിച്ചതെന്ന് ശ്രീറാം പൊലീസിനോട് പറഞ്ഞു ഇത് സ്ഥിരീകരിക്കുന്നതിനായി അപകടം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പൊലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പഠനാവധി കഴിഞ്ഞെത്തിയ ശ്രീറാം വെങ്കിട്ടരാമനെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറായി നിയമിച്ചത്

ഉൾവനത്തിലേക്ക് രക്ഷപ്പെട്ട മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ കേരള തമിഴ്നാട് പൊലീസ് സംയുക്ത പരിശോധനയാരംഭിച്ചു ജിപിഎസ് സംവിധാനത്തിന്റെ സഹായത്തോടെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം മനസിലാക്കി വളയാനുളള തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ശ്രമത്തിനിടെയാണ് സംഭവം

ഇന്നാണ് ദുൽഹജ് ഒന്ന്

ഫ്ളോറിഡയിലാണ് ഇന്നത്തെ മൽസരം

രോഹിത് ശർമ്മയും ധവാനുമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ്

ഭുവനേശ്വർ കുമാർ ആയിരിക്കും ഇന്ത്യൻ ബൌളിങ്ങിന്റെ അമരത്ത്

ചൈനയും അമേരിക്കയും തമ്മിൽ അവസാനമായി നടത്തിയ വ്യാപാര ചർച്ചകൾക്ക് പിന്നാലെയാണ് തീരുമാനം

എസ് കാർഷിക ഉല്പന്നങ്ങൾ കൂടുതലായി വാങ്ങുമെന്ന ഷാങ്ഹായി കരാറിലെ ഉറപ്പ് ചൈന പാലിച്ചില്ലെന്ന് ട്രംപ് ആരോപിച്ചു

ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്മാർട്ട് ഫോൺ മുതൽ വസ്ത്രങ്ങൾ വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ബാധകമാകും